അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി അവശ്യസേവന മേഖ്ലയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ വിഭാഗങ്ങളെ പൊല്ലീസ് പാസ്സിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ

രോഗബാധ പടരുന്ന നിരക്ക് കുറയുന്നു

ഇന്നലെ ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

സംസ്ഥാന സർക്കാരുകൾ വൈറസ് പ്രതിരോധത്തിനായി നടത്തുന്ന ശ്രമങ്ങളെ അങ്ങേയറ്റം ആത്മാർഥതയോടെ കാണണം അവശ്യ വസ്തുക്കളുടെ ലഭൃത ഉറപ്പാക്കുമെന്നും ലോക്ഡൌന്റെ ഭാഗമായി സർക്കാർ കൊണ്ടു വന്ന നിയന്ത്രണങ്ങളോട് ജനങ്ങൾ പൂർണമായി സഹകരിച്ച് വീടുകളിൽ തന്നെ കഴിയണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

മെഡിക്കൽ ഷോപ്പൂക്ൾ പെട്രോൾ പമ്പൂകൾ പലചരക്കു കടകൾ പാൽ ബൂത്തുകൾ ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനങ്ങൾ എന്നിവയെ പ്പില്ക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്

നിയമം ലംഘിക്കുന്നവർക്ക് രണ്ട് വർഷത്തെ ശിക്ഷ വരെ ലഭിക്കാവുന്ന ദേശീയ ദുരന്ത നിവാരണ ആക്ടും പ്രാബലൃത്തിൽ വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ പൊതുമേഖല സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ പ്രവർത്തിക്കില്ല

പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് അവശ്യ സേവനങ്ങളല്ലാതെ ഒന്നും അനുവദിക്കുന്നില്ല

ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിനു പോകുമ്പോൾ ഇക്കൂട്ടർ തങ്ങളുടെ സ്ഥാപനം നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൊലീസിനെ കാണിച്ചാൽ മതിയാകും സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റു ജീവനക്കാരും ആംബുലൻസ് സർവീസ് ഡ്രൈവർമാർ ജീവനക്കാർ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ലാബ് ജീവനക്കാർ മൊബൈൽ ടവർ ടെക്നീഷ്യന്മാർ ഡാറ്റ സെൻറർ ഓപ്പറേറ്റർമാർ യൂണിഫോമിലുള്ള ഫുഡ് ഡെലിവറി ബോയ്സും സ്ഥകാര്യ സുരക്ഷ ജീവനക്കാരും പാചകവ്ടുതക വിതരണം പെട്രോൾ ബങ്ക് ജീവനക്കാർ എന്നിവരെയാണ് പ്പൊല്ലീസ് പാസ് ലഭിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയത്

ആർ

ഡി ജി

സജിത് ബാബു നിർദ്ദേശം നൽകി

ലോക് ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലും മറ്റും ശക്തമായ പോലീസ് സാന്നിദ്ധ്യം ഉണ്ടാകും അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന എല്ലാ താലുക്കുകളിലും കൃാമ്പുകൾ സ്ഥാപിക്കുമെന്ന് പത്തനംതിട്ട കളക്ടർ പി

നൂഹ് പറഞ്ഞു

ക്വാറന്റൈനിൽ കഴിയുന്ന വൃക്തികൾ ക്ലിർദ്ദേശിച്ച കാലയളവ് വരെ മറ്റാരുമായും സമ്പർക്കം കൂടാതെ പ്പീടുകൾ നിർബന്ധമായും കഴിയണമെന്നും കലക്ടർ അഭ്യർഥിച്ചു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾക്കാവശ്യമായ സഹായങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണ സാമഗ്രികൾ ീസമയബന്ധിതമായി അവരിലേക്ക് എത്തിക്കുന്നതിനായി ജില്ലാത്ലം മുതൽ വാർഡ് തലം വരെ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് രോഗലക്ഷണമുള്ളവർ ആംബുലൻസിൽ മാത്രദ്മി ആശുപത്രികളിൽ ചികിത്സതേടാവൂവെന്നും അദ്ദേഹം നിർദേശിച്ചു

മറ്റിടങ്ങളിൽ നിന്നെത്തിയ എം

ഇവരുടെ വിശദാംശങ്ങൾ ആരോഗ്യ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ ഫെറ്റലുമായി ദിവസംതോറും ആശയവിനിമയം അമർ നടത്താറുണ്ടെന്നും മെഡിക്കൽ ഡയരക്ടർ അറിയിച്ചു

അവശ്യ വസ്തുക്കൾക്ക് വില വർദ്ധിപ്പിക്കരുതെന്നും സാഹചര്യം മുതലെടുക്കരുതെന്നും അദ്ദേഹം വ്യാപാരികളോടും ഉല്പാദകരോടും ആവശ്യപ്പെട്ടു

ഇതുവരെ ഒമ്പത് മരണമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്

ആഗോള മരണനിരക്കിൽ കുറവുണ്ടായിട്ടുണ്ട് സ്പെയിൻ ജർമനി തുടങ്ങിയ രാജ്യങ്ങളിലും രോഗബാധ സ്ഥിരീകരിക്കുന്നത് കുറഞ്ഞു ഇറ്റലിയിൽ ഇന്നലെ പുതിയതായി മരണമോ രോഗബാധയോ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടില്ല

ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരന്റെ റിപ്പോർട്ട്

ജില്ലാ പൊലീസ് മേധാവി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സ്പെഷ്യൽ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള പോലീസ് സേനാംഗങ്ങൾ പങ്കെടുത്തു

മാരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും റൂട്ട് മാർച്ച് നടത്തി കൊല്ലത്തും പൊലീസ് റൂട്ട് മാർച്ച് നടത്തി

പ്രവന്ത്തിനുള്ളിലെ സമാന്തരപാതകളിലൂടെ ആളുകൾ തമിഴ്നാട്ടില്ലേക്കു പോകുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണിത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

മൈക്രോ സംരംഭക വായ്പയടക്കം എല്ലാ വായ്പകൾക്കും ഈ സാവകാശം ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

പ്രീമിയം അടയ്ക്കേണ്ട അവസാന തീയതി എൽ ഐ സി

മരുന്നിന് ആഭ്യന്തര വിപണിയിൽ ക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് സർക്കാരിന്റെ നടപടി ഹൈഡ്രോക്സി ക്ലോറോകിൻ ചേരുവയായ മരുന്നുകളുടെ കയറ്റുമതിയും നിരോധിച്ചിട്ടുണ്ട്

ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ ഇലക്ട്രറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി

തേയിലത്തോട്ടത്തിൽ നിന്ന് ജോലികഴിഞ്ഞ് കാട്ടുപാതിയിലൂടെ തേനിയിലേക്ക് പോയവരാണ് ഇന്നലെ കാട്ടുത്തീയിൽപ്പെട്ടത് കോവിഡ് പശ്ചാത്തലത്തിൽ തോട്ടംതൊഴിലാളികൾ കേരളത്തിലേക്ക് പോകുന്നത് തമിഴ്നാട് വിലക്കിയിരുന്നു

തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള നാല് പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് തീയണക്കാനായത്

കോഴിക്കോട് ടൌൺസ്റ്റേഷൻ പരിധിയിൽ മൂന്ന് ഇടങ്ങളിലാണ് പരിശോധന നടത്തുന്നത്

ഇരുചക്രവാഹനങ്ങളാണ് നിരത്തുകളിൽ അധികവും സർവീസ് നടത്തുന്നത് സിറ്റിപോലീസ് പരിധിയിൽ നൂറോളം പിക്കറ്റ് പോസ്റ്റുകളും അമ്പതോളം പട്രോളിംഗ് വാഹനങ്ങളും പരിശോധനക്ക് ഉണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധനക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്